അടുത്ത ഒരാഴ്ച കടുത്ത നിയന്ത്രണങ്ങൾ

പ്രതിദിന കോവിഡ്ബാധിതരുടെ എണ്ണത്തിലെ ഏറ്റവും വലിയ വർദ്ധന രേഖ്പ്പെടുത്തി രാജ്യം

സുനിൽകുമാർ ഐപിഎല്ലിൽ ഇന്ന് പഞ്ചാബ് കിംഗ്സ് റോയൽ ചലഞ്ചേഴ്സ് ബെംഗളൂരുവിനെ നേരിടും

കൊവിഡ് വ്യാപനം അതിതീവ്രമായ കൊവിഡ് വ്യാപനം തടയാൻ അടുത്ത ഒരാഴ്ച സംസ്ഥാനത്ത് കടുത്തു നിയന്ത്രണങ്ങൾ ഏർപ്പെടത്താൻ കൊവിഡ് അവല്ലേക്കുന സമിതിയോഗം തീരുമാനിച്ചതായി മുഖ്യമന്ത്രി പ്രൂപിണറായി വിജയൻ അടുത്തമാസം നാലുമുതൽ ഞായ്റ്റാഴ്ച വരെയാണ് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുകൂ നിലവിൽ ശനിയും ഞായറുമുള്ള അതേ നിയന്ത്രണം ചൊവ്വാഴ്ച മുതൽ ഒമ്പതാം തീയതി വരെ നടപ്പക്കാറ്നാണ് തീരുമാനിച്ചിരിക്കുന്നത് പ്രതിദിന രോഗ ബാധിത്തുടെ നിരക്കും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും കുത്തനെ വർധിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് രണ്ടാഴ്ചത്തെ സമ്പൂർ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ഐ എം എയും സർക്കാർ ഡോക്ടർമാരുടെ സംഘടനയായ കെ ജി എം ഒ യും മുന്നോട്ടുവച്ചതിന് തൊട്ടുപിന്നാലെയാണ് സർക്കാറിന്റെ തീരുമാനം

അംഗീകരിച്ച ടെസ്റ്റ് കിറ്റുകൾ കുറഞ്ഞ നിരക്കിൽ വിപണിയിൽ ലഭ്യമായ സാഹചരൃം വിലയിരുത്തിയാണ് പരിശോധനാ നിരക്ക് കുറച്ചത്

എറണാകുളം സ്വകാര്യ ആശുപത്രിയിലെ അനസ്തീഷോളജിസ്റ്റ് ഡോ ടി വി ജോയ് കോട്ടയം മെഡിക്കൽ കോളജിലെ ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ ജി സോമരാജൻ എന്നിവരുടെ കുടുംബത്തിനാണ് ഇൻഷവറൻസ് അനുവദിച്ചത്

നെല്ല് സംഭരണം പു സംസ്ഥാനത്ത് നെല്ല് സംഭരണം ഒരാഴ്ചയ്ക്കകം പൂർത്തിയാക്കുമെന്നും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ജില്ലാ കളക്ടർമാർ നേരിട്ട് ഇടപെട്ട് പ്രശ്നപരിഹാരം കാണുന്നതായിരിക്കുമെന്നും കൃഷി മന്ത്രി വി എസ് സുനിൽകുമാർ അറിയിച്ചു കൃഷിമന്ത്രിയുടെയും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയുടെയും നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് തീരുമാനമുണ്ടായത്

വോട്ടെണ്ണൽ കണക്കിലെടുത്ത് കനത്ത സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്

കമ്മീഷന്റെ വോട്ടർ ഹെൽപ്ലൈൻ ആപ്പിലൂടെയും ഫലം അറിയാം

മുൻകാല്പങ്ങളിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ യുഡിഎഫിന് എതിരായ്ടിരുന്നു്വെന്നും ഫലം വന്നപ്പോൾ അത് തെറ്റാണെന്ന് തെളിഞ്ഞ്ത്യും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന എക്സിറ്റ്പോളുകൾ എൽഡിഎഫിന് മുൻതൂക്കം പ്രവചിച്ചിരുന്നു

പണരഹ്മിത ് ക്ലൈമുകൾ വേഗത്തിലാക്കാൻ ഇൻഷുറൻസ് കമ്പനികൾക്ക് പ്രിർദ്ദേശം നൽകണമെന്ന ഡൽഹി ഹൈക്കോടതി ഉത്തരവ്ടിഒന്തുടർന്നാണ് നടപടി

കോവിഡ് ബാധയെ ്തുടർന്ന് ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നു പുലർച്ചെയായിരുന്നു അന്ത്യം

ഇന്നലെ നടന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസ് വിജയം നേടി